കക്ഷികളുടെ നീക്കമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതി അസ്ഥിരത അസമത്വം എന്നിവയുടെ കൂട്ടായ്മയാണ് പുതിയ പ്രതിപക്ഷ സഖ്യമെന്നും പ്രധാനമന്ത്രി

ദേശീയ ഗ്രാമീണ തൊഴിലുറ്റപ്പ് പിദ്ധതി തൊഴിലാളികൾക്കായി പ്രമ്പ്രി ക്ഷേമപദ്ധതി നടപ്പാക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ശബരിമല കർമസ്മിതിയുടെ ആഭിമുഖൃത്തിൽ തലസ്ഥാനനഗ്ഗൃതിയിൽ സംഘടിപ്പിച്ച അയ്യപ്പഭക്ത സംഗമത്തിൽ പ്പങ്കെടുത്തത് പതിനായിരങ്ങൾ

ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരേ ബിജെപി സെക്രട്ടേറിയേറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു സമരത്തിന് പിന്നിൽ ജാതി മേധാവികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനൊന്നാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഇന്ന് തുടക്കം പ്രപധാനമന്ത്രി രാജ്യത്ത് കുടുംബ വാഴ്ച സംരക്ഷിക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ നീക്കമെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി ഇതിന്റെ ഭാഗമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മഹാരാഷ്ട്രയിലേയും ഗോവയിലെയും ബി ജെ പി പ്രവർത്തകരുമായി വീഡിയോയിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അഴിമതി അസ്ഥിരത അസമത്വം എന്നിവയുടെ കൂട്ടായ്മയാണ് പുതിയ പ്രതിപക്ഷ സഖ്യമെന്നും അദ്ദേഹം വിമർശിച്ചു

ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് വിശ്വാസമില്ലെന്നും അവയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന തിരക്കിലാണ് അവരെന്നുള്ള പ്രധാനമന്ത്രി പറഞ്ഞു

ദേശീയ ഗ്രാ്മീണ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിർമ്മാണത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നവകേരള പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനായി കൂടുതൽ തൊഴിൽദിനങ്ങൾ നൽകുന്നതിലേക്ക് പദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നകാര്യം കേന്ദ്ര ഗവൺമെന്റെിൻെറ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ അനുകൂല മറുപടി ലഭിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഓരോ ക്ഷേത്രത്തിനും അതിന്റേതായ ആചാരമുണ്ടെന്നും അത് സംരക്ഷിക്കണമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ അദ്ധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി അധ്യക്ഷ കെ

അയ്യപ്പജ്യോതിയാണോ വനിതാ മതിലാണോ വലുതെന്ന് വിശ്വാസികൾ തെളിയിക്കണമെന്ന് ശ്രീ സെൻകുമാർ ആവശ്യപ്പെട്ടു

നിരാഹാരം കിടന്നിരുന്ന ബിജെപി നേതാവ് പ്പി

കൃഷ്ണദാസിന് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്

കേരള സമൂഹത്തിന്റെ വലതുപക്ഷവത്കരണം എന്ന വിഷയത്തിൽ ഇ

എസ് അക്കാദമി തിരുവന്തപുരത്ത് നടത്തിയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

നവോത്ഥാനം അട്ടിമറിക്കാൻ കോടതി വലതുപക്ഷ ശക്തികൾ ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു

വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗീസ്

ഈ മണ്ഡലകാലത്ത് ഉണ്ടായ പ്രപ്രിശ്നങ്ങൾ ആവർത്തിക്കരുതെന്നും പന്തളം കൊട്ടാരം നിർവാഹക സ്മിതി അംഗം ശശികുമാര വർമ പറഞ്ഞു അതേസമയം ചർച്ചയ്ക്കു തയാറാണെന്ന പന്തളം കൊട്ടാരത്തിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ

രമ്യമായി പ്രശ്നം പരിഹരിക്കണമെന്നു തന്നെയാണു ബോർഡിനു താത്പര്യമെന്നും കഴിയുംവിധം പ്രശ് നപരിഹാരത്തിനു ശ്രമിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

വിശുദ്ധ സെബാസ്റ്റ്യന്റെ രൂപവുമായി പള്ളിയിൽ നിന്ന് അർത്തുങ്കൽ ബീച്ചിലേക്കും തിരിച്ചുമുള്ള യാത്രയും തുടർന്നുള്ള ചടങ്ങുകളുമാണ് പെരുന്നാളിന്റെ പ്രധാന ആകർഷണം

വിവര സംവിധാനത്തിന്റെ പൂർത്തീകരണം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും വിവിധ തലത്തിലുള്ള നീർത്തട ഭൂപടങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാകുന്ന നീർത്തട വിവര സംവിധാനത്തിന്റെ പ്രകാശനവും ഇതൊടൊപ്പം നടക്കും

അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ ആകാശവാണിയോട്

എസ് ആർ

കൊച്ചിയിൽ ഒരു സ്ഥകാര്യ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾക്കായി യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ഉടൻ ആരംഭിക്കും

ആർ ഒ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു

എസ് സംവരണ പരിധിയിൽ നിന്നും പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ ഒഴിവാക്കിയ ഗവൺമെന്റ് നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് കെ

സി

ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംവരണം നൽകാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ പതിനായിരക്കണക്കിന് പേരെ അണ്ടിനിരത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് ന്യട്ടത്തുമെന്നും കെ

സി സി പ്രസിഡന്റ് പറഞ്ഞു

ഐ ആർ തിരുത്തി പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഉപ്പേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് എതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല കത്തിൽ ആവശ്യപ്പെട്ടു

വിശദാംശങ്ങളുമായി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലി മുത്ത്

ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ്മിഷനും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും സംയുക്തമായാണ് ആരോഗ്യനൌക ആരംഭിച്ചിരിക്കുന്നത്

കഴിഞ്ഞ ഒരാഴ്ചയായി നഗരത്തിന് വിവിധതരം പൂക്കളെയും ചെടികളെയും പരിചയപ്പെടുത്തിയാണ് മേള സമാപിക്കുന്നത് കുറഞ്ഞകാലം കൊണ്ടുതന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കൃഷിരീതിയായ അകാപ്പോണ്ടിക്സ് പരിചയപ്പെടുത്താൻ വസന്തോത്സവത്തിൽ പ്രത്യേക സ്റ്റാർ ഒരുക്കിയിരുന്നു

എസ് ആർടി സി

ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയായിരുന്നു അപകടം